ഇന്ത്യ ജപ്പാൻ വിദേ്ശകാര്യ പ്രതിരോധ മന്ത്രിതല ചർച്ച ഇന്ന് ന്യൂഡൽഹിയിൽ

സയ്യിദ് മോദി അന്താരാഷ്ട്ര ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് സെമിയിൽ സൌരഭ് വർമ്മയും റിതുപർണ ദാസും ഇന്ന് മത്സരിക്കും

ഛത്ര പലാമു ഗുംല ഗർഹ ലെറ്റഹർ ലൊഹദഹ എന്നീ ജില്ലകളിലെ നക്സൽ ബാധിത പ്രദേശങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ്

പ്രതിപക്ഷ സഖ്യ കക്ഷികളായ ജെ എം

സി പി സഖ്യ ഗവൺമെന്റ് നിയമസഭയിൽ ഇന്ന് വിശ്വാസ വോട്ട് തേടും

കൂടുതൽ വിവരങ്ങളുമായി മല്ലിക

യുമായില്ള്ള് സഖ്യം പിരിഞ്ഞതിനെ തുടർന്നാണ് ശിവസേന എൻ

മുഖ്യമന്ത്രി സ്ഥാനം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട തകർക്കത്തെ ക്യൂട്ടർന്നാണ് ബി ജെ പി ശിവസേനാ സഖ്യം വേർപിരിഞ്ഞത് ദേവേന്ദ്രിക്ക്യ്നാവിസിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ രാജിവച്ച സാഹചര്യത്തിൽ ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിൽ മഹാരാഷ്ട്രയിൽ പുതിയ ഗവൺമെന്റ് രൂപീകരിക്കുകയായിരുന്നു

ആഗോള വേദികളിലെല്ലാം തീവ്രവാദത്തിന്റെ പേരിൽ പാകിസ്ഥാൻ ഒറ്റപ്പെട്ടുവെന്നും ശ്രീ രാജ്നാഥ് സിംഗ് അറിയിച്ചു തീവ്രവാദത്തിനെതിരെ പോരാടാൻ കഴിവുള്ള സൈന്യമാണ് നമ്മുടെ രാജ്യത്തിന്റെ ശക്തിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

പൂഞ്ച് ജില്ലിയിൽ് ഇന്ത്യൻ സൈനികപോസ്റ്റുകൾക്കു നേരെയും ജനവാസ മേഖലകൾക്കുനേരെയുമാണ് പാക് സൈന്യം പ്രകോപനമില്ലാതെ വെടിയുതിർത്തത്

അനന്ത്നാഗിൽ ജോലി കഴിഞ്ഞ് മടങ്ങിയ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ സഹൂർ അഹമ്മദാണ് ഗ്രനേഡ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്

ഗ്രാമ മുഖ്യന് നഷ്ടപരിഹാരം നൽകാനും ഗ്രാമ വികസന വകുപ്പിനോട് ഗവർണർ നിർദ്ദേശിച്ചു ആക്രമണത്തിൽ രണ്ട് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിരുന്നു

വിവിധ മന്ത്രാലയങ്ങളുമായി ബന്ധപ്പെട്ട് വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി നവമാധ്യമങ്ങളിൽ ഉൾപ്പടെ തെറ്റായതും അവ്യക്തവുമായ വാർത്തകൾ ലഭിക്കുകയാണെങ്കിൽ അവയുടെ സ്നാപ്പ്ഷോട്ടുകൾ സഹിതം ഇ മെയിൽ അയക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് പണം നൽകി വാർത്ത നൽകുന്നതിനെക്കാൾ ഭയാനകമാണ് വ്യാജവാർത്തകൾ സ്വീകരിക്കുന്നതെന്ന് വാർത്താവിതരണ പ്രക്ഷേപണമന്ത്രി പ്രകാശ് ജാവ് ദേക്കർ പറഞ്ഞു

കൂടുതൽ വിവരങ്ങളുമായി മല്ലിക വോയ്സ് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എന്നിവരാണ് ഇന്ത്യയുടെ പ്രതിനിധികളായി ചർച്ചയിൽ പങ്കെടുക്കുന്നത് ജപ്പാൻ പ്രതിനിധി സംഘത്തിന് വിദേശകാര്യമന്ത്രി തോഷി മിത്സു മൊട്ടേഗി പ്രതിരോധമന്ത്രി താരോ കോനോ എന്നിവർ നേതൃത്വം നൽകും പ്രതിരോധ സുരക്ഷാ രംഗങ്ങ്ങ്ളിൽ ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്തുകൃതിാണ് ടു പ്ലസ് ടു ചർച്ചയുടെ മുഖ്യലക്ഷ്യം

ഇന്തോ പസഫിക് മേഖ്ലൂർയിലെ നിലവിലെ സ്ഥിതിയും യോഗം അവലോകനം ക്ഷേമത്തിനായി ആവിഷ്ക്കരിച്ചിട്ടുള്ള വിവിധ പദ്ധതികളും മേഖലയുടെ മികച്ച ഭാവി ലക്ഷ്യമാക്കിയുള്ള ആസൂത്രണങ്ങളും സമ്മേളനം വിലയിരുത്തും

വിദേശകാര്യമന്ത്രി എസ്

ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ഉഭയകക്ഷി നിക്ഷേപക ബന്ധം ശക്തിപ്പെടുത്താൻ ഇന്ത്യ എന്നും ആഗ്രഹിക്കുന്നതായി രാഷ്ട്രപതി രാം നാഥ് കോവിന്ദ് വ്യക്തമാക്കി വികസന സഹകരണമാണ് ഇന്ത്യ ശ്രീലങ്ക ബന്ധത്തിന്റെ അടിസ്ഥാനമെന്നും അദ്ദേഹം പറഞ്ഞു സുരക്ഷ വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇരു രാജ്യങ്ങളും എല്ലാ മേഖലകളിലും സഹകരണം വർദ്ധിപ്പിക്കണമെന്നും രാഷ്ട്രപതി ആവശ്യപ്പെട്ടു

പാലക്കാട്മൂന്നാം സ്ഥാനത്ത്

ഇന്നലെ കാഠ്മണ്ഠുവിൽ നടന്ന പുര്യ്ക്ഷ് വിഭാഗം മത്സരത്തിൽ നേപ്പാളിനെ നേരിട്ടുള്ള മൂന്ന് സെറ്റുകൾക്ക് ഇന്ത്യ പരാജയപ്പെടുത്തിയിരുന്നു

ജെ

എംപി പ്രഗ്യാസിംഗ് താക്കൂർ അവകാശ ലംഘനത്തിന് ലോക്സഭാ സ്പീക്കർക്ക് നോട്ടീസ് നൽകി ഒരു കോടതിയിലും തനിക്കെതിരെ കുറ്റം ആരോപിച്ചിട്ടില്ല

കരിമ്പുതോട്ടത്തിൽ തൊഴിലാളികളുമായി പോയ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്

കടൽ സുരക്ഷ ഉറപ്പു വരുത്തുക എന്നത് നാവികസേനയുടെ ചുമതലയാണെന്നും സുരക്ഷ ക്ഷേമം ബഹുമാനം എന്നിവ നിലനിർത്തിയാവണം ഓരോ കേഡറ്റുകുളൂർ സേവനമനുഷ്ഠിക്കേണ്ട തെന്നും നാവിക സേന മേധാവി പറ്റ്ണ്ടു് കേരളത്തിൽ കണ്ണൂരിലെ ഏഴിമല നാവിക അക്കാദമിയിൽ പ്രിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ പാസിംഗ് ഏറ്ട്ട് ്പരേഡിനെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ് അദ്ദേഹം